പ്രധാനമന്ത്രി നഗര പാർപ്പിട പുരുതിയ്ക്ക് കീഴിൽ ഒരു കോടിയിലധികം വീടുകൾക്ക് അ്നുമതി നൽകിയതായി ഗവൺമെന്റ്

കശ്മീർ താഴ്വരയിൽ ്സ്ഥിതിഗതികൾ സാധാരണ നിലയിലേക്കെന്ന് ബീ ജെ

ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അതിശൈത്യം തുടരുന്നു

ന്യൂഡൽഹിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ജനങ്ങൾക്ക് താങ്ങാവുന്ന നിരക്കിൽ വീടുകൾ ലഭ്യമാക്കുന്ന ലോകത്തിലെ തന്നെ വലിയ പദ്ധതികളിൽ ഒന്നാണ് പ്രധാനമന്ത്രി നഗരപാർപ്പിട പദ്ധതി വിവിധ സാമൂഹിക വിഭാഗങ്ങൾ പദ്ധതിയുടെ ഭാഗമായതായി കേന്ദ്ര നഗരകാരൃ സെക്രട്ടറി ദുർഗ ശങ്കർ മിശ്ര വ്യക്തമക്കി

വീടുകൾ സ്ത്രീകളുടെ പേരിലോ ഇരുവരുടെയും പേരിലോ ആയതിനാൽ വനിതാ ശാക്തീകരണത്തിനും പദ്ധതി ലക്ഷ്യമിടുന്നതായി അദ്ദേഹം വ്യക്തമാക്കി

ജെ

നിയമഭേദഗതിയിന്മേൽ പ്രതിപക്ഷപാർട്ടികൾ രാജ്യത്ത്യന്റെ വിവിധ ഭാഗങ്ങളിൽ വർഗ്ഗീയ വിദ്വേഷങ്ങൾ പടർത്തുന്നതായും അദ്ദേഹം ആരോപിച്ചു

പൌരത്വഭേദഗതി നിയമത്തിന്റെ പേരിലുള്ള തെറ്റായ പ്രചാരണങ്ങളിൽ അകപ്പെടരുതെന്നും അദ്ദേഹം ജമ്മുകാശ്മീരിലെ ജനങ്ങളോട് അഭൃർത്ഥിച്ചു

കാർഗിലിൽ ഇന്റർനെറ്റ് സേവനം പുനഃസ്ഥാപിച്ചതായും സ്ഥിതിഗതികൾ അനൂകൂലമാകുന്നതോടെ ജമ്മു മേഖലയിലും കശ്മീർ താഴ് വരയിലും ഇന്റർനെറ്റ് പുനഃസ്ഥാപിക്കുമെന്നും ശ്രീ

ജെ

ജെ

സംസ്ഥാന അധ്യക്ഷൻ വി

മറ്റ് രണ്ട് ബി ജെ പി എം

ജെ പി സ്പ്യകക്ഷികളായ എൻ

കോൺഗ്രസും എ

ഷിംലയിൽ നടന്ന റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം രാജ്യത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്ത ഹിമാചൽ പ്രദേശിലെ ജനങ്ങളുടെ ധൈര്യത്തെ കേന്ദ്രമന്ത്രി പ്രകീർത്തിച്ചു സംസ്ഥാനത്ത് ജയറാം താക്കൂർ നയിക്കുന്ന ബി ജെ പി ഗവൺമെന്റിന്റെ രണ്ടാം വാർഷികത്തോടനുബന്ധിച്ചാണ് റാലി സംഘടിപ്പിച്ചത് പൌരത്വനിയമ ഭേദഗതിയിലൂടെ ആരുടെയും പൌരത്വം ഒഴിവാക്കില്ലെന്നും കോൺഗ്രസ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു

ജി

അസമിലെ ജാഗീ റോഡിൽ സംഘടിപ്പിച്ച സമാധാന റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം വൈവിധ്യമാർന്ന ജനതയുടെ ഭാഷയും സംസ്കാരവും ഭൂമിസംബന്ധമായ അവകാശങ്ങളും സംരക്ഷിക്കാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ചു

അതുമായി ബന്ധപ്പെട്ട് വ്യാജ പ്രചാരണങ്ങളാണ് നടക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു

ഇതു സുംബന്ധിച്ച യാതൊരു ഫയലും ഈ ഗവൺമെന്റിന്റെ കാലത്ത് മ്ന്ത്രിമാരാരും കണ്ടിട്ടില്ല

യൂറോപ്യൻ നിയമങ്ങൾക്കനുസൃതമായാണ് ബി

ഹരിയാനയിലും പഞ്ചാബിലും അതിശൈത്യം നിലനിൽക്കുകയാണ്

മധ്യപ്രദേശിൽ മഴയും മൂടൽ മഞ്ഞും ശൈത്യക്കാറ്റും മൂലം അസഹനീയമായ കാലാവസ്ഥയാണ് ബീഹാറിലെ നിരവധി വിദ്യാലയങ്ങൾക്ക് അതിശൈത്യം കാരണം അവധി നൽകി

പോക്സോ പ്രത്യേക കോടതിയുടെ വിധിക്കെതിരായി പ്രതി അനിൽ യാദവ് സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളുകയായിരുന്നു ജസ്റ്റിസ് ബേല ത്രിവേദി ജസ്റ്റിസ് എ

റാവു എന്നിവരടങ്ങിയ ഡിവിഷൻ ബഞ്ചാണ് വിധി പുറപ്പെടുവിച്ചത്

ഇന്ത്യൻ അതിർത്തി സേന പാകിസ്ഥാന് ഉചിതമായ തിരിച്ചടി നൽകി

ശനിയാഴ്ച നടക്കുന്ന പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ഇന്ത്യ വീണ്ടും ദക്ഷിണാഫ്രിക്കയുമായി ഏറ്റുമുട്ടും

ലഡാക്ക് ലഫ്റ്റനന്റ് ഗവർണർ ആർ

ലഡാക്കിന്റെ സംസ്കാരവും പാരമ്പര്യവും പരിസ്ഥിതിയും സമ്പദ്വൃവസ്ഥയും സംരക്ഷിക്കുന്നതിനായാണ് കേന്ദ്രഭരണ പ്രദേശമാക്കിയതെന്ന് ശ്രീ

ലഡ്യാക്കി ബ്ുദ്ധിസ്റ്റ് അസോസിയേഷനും ഭരണകൂടവൂർ ്സുംയ്ക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്